പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

കാറ്റിന് സാധ്യത തീരം അതീവ ജാഗ്രതയിൽ

മാമാങ്കത്തിന് ഇന്ന് റഷ്യയിൽ തുടക്കം

ഉദ്പാദന ക്ഷമത ഗുണമേന്മ ചെലവ് ചുരുക്കൽ പ്പരിസ്ഥിതി സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായ്ക്ക്മാകുന്ന സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയാണ് പ്ലാന്റ് ന്വീകരിച്ചിരിക്കുന്നത്

ഐ ടിയുടെ സ്ഥിരം ്കാമ്പസിന്റെ ശിലാസ്ഥാപനവും ഭാരത്നെറ്റിന്റെ രണ്ടാംഘട്ടത്തെ സൂചി പ്പിക്കുന്ന ലോഹഫലകത്തിന്റെ പ്രകാശനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും ഭൂഗർഭ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്റർനെറ്റ് സേവനം എത്തിക്കാനുളള പദ്ധതിയാണ് ഭാരത്നെറ്റ് ജഗ്ദൽപൂരിനും റായ്പൂരിനുമിടിയിലെ വിമാന സർവ്വീസിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വിഹിക്കും വിവിധ പദ്ധതികളിൻ കീഴിലെ ഗുണഭോക്താക്കൾക്ക് ലാപ്ടോപ്പുകൾ സർട്ടിഫിക്കറ്റുകൾ ചെക്കുകൾ എന്നിവ ഒരു പൊതു ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും ഭിലായിലേക്ക് പുറപ്പെടുമുൻപ് നയാ റായ്പൂരിൽ ഇന്റഗ്രേറ്റഡ് കമാന്റ് ആന്റ് കൺട്രോൾ സെന്ററിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

കഴിഞ്ഞ നാല് വർഷത്തെ എൻ

എ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ നടത്തിപ്പിലെ പുരോഗതി യോഗം വിലയിരുത്തി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ഫസൽ ബീമ യോജന പ്രധാൻമന്ത്രി ഉജ്ജല യോജന സ്റ്റാർട്ട് അപ്പ് ഫണ്ടിംഗ് പദ്ധതികൾ മുദ്ര യോജന തുടങ്ങിയ പദ്ധതികൾ യോഗത്തിൽ അവലോകനം ചെയ്തു

പാക് വെടിവയ്പിൽ ഇന്നലെ നാല് ജവാന്മാർ വീരമൃത്യു വരിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കടുത്ത പ്രതിഷേധം ജമ്മുവിലെ സുചേത്ഗഡിൽ ഒക്ട്രോയി അതിർത്തി പോസ്റ്റിലാണ് ബിഎസ്എഫ് ഉന്നതർ പാക് റ്റേഞ്ചേഴ്സുമായി കൂടിക്കാഴ്ച നടത്തിയത്

അടുത്തിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ്സിംഗ് തന്റെ കശ്മീർ സന്ദർശനത്തിനിടെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുളള പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നാലാമത് ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ വൃവസായ ഉച്ചകോടിയെയും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിസംബോധന ചെയ്തു പ്രതിരോധ വ്യവസായ മേഖലയിലെ ആദ്യ കാൽവയ്പ് കൂടുതൽ വിപുലമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു സ്വകാര്യ മേഖലകളിലേക്കും ഇരു രാജ്യങ്ങളുടെയും സഹകരണം വ്യാപിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു വിയറ്റ്നാം രാജ്യരക്ഷാ മന്ത്രി ജനറൽ ന്യൂഗോ സുവാൻ ലിച്ചുമായിശ്രീമതി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി പ്രപ്പതിർോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെ ക്കുറിച്ച് ഇരുവരും ചർച്ചകൾ നടത്തി

ബസ്തർ മേഖലയിലെ നാരായൺപൂർ ബിജാപൂർ ജില്ലകളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്

അറസ്റ്റിലായവർ നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്ന് പൊലീസ് അറിയിച്ചു

എച്ച് ഡി ബിരുദം നിർബന്ധമാക്കുമെന്ന് കേന്ദ്ര മാനവ വിഭവ ശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

ടെസ്റ്റും അഥവാ പി എച്ച്ഡി ബിരുദവും കോളെജുകളിലെ നിയമനത്തിന് മാനദണ്ഡമായി തുടരുമെന്നും ശ്രീ ജാവ്ദേക്കർ അറിയിച്ചു

ജി സിയുടെ പുതിയ നിബന്ധനകൾ വൃക്തമാക്കുകയായിരുന്നു മന്ത്രി

കോളേജ് അധ്യാപകർക്ക് ഗവേഷണം നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ബാദ്ധ്യസ്ഥരാണെന്നും ശ്രീ

സംസ്ഥാനത്തെ മലയോര മേഖലകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് പലയിടങ്ങളിലും മഴവെള്ളപ്പാച്ചിലില് റോഡ് തകർന്നും മരംവീണും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തേക്കുള്ള നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന

ശക്തമായ കാറ്റിൽ ഈ പ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബദ്ധമാവാനും കേരള തീരത്ത് നാല് മീറ്ററോളം വരെ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു

സംസ്ഥാനത്തെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞു

താഴ്വരഭാഗത്തെ ഗവൺമെന്റ് ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാനാകാത്ത സ്ഥിതിയാണ് തലസ്ഥാനമായ ഇംഫാലിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ ബിഷ്ണുപൂർ തൌബാൽ ജില്ലകൾ എന്നിവിടങ്ങിളെല്ലാം വെളളം കയറി ചെഖോൺ മേഖലയിലെ ദുരിതബാധിത പ്രദേശങ്ങളി മുഖ്യമന്ത്രി ബീരേൻ സിംഗ് സന്ദർശനം നടത്തി

തുടർച്ചയായി മുഴ തുടുരുന്ന സാഹചര്യത്തിൽ സ്ഥിതി ഗതികൾ കൂടൂത്ൽ വഷളാകുമെന്ന ആശങ്കയുണ്ട് ഇതുവരെ കനത്ത മുഴിയിൽ ് മൂന്ന് പേർ മരിച്ചതായി പൊലീസ് അറിയിച്ചു ഗോമതി ക്ലോവെ മനു മുഹ്രി നദികളിലെ ജലനിരപ്പ് നിയന്ത്രണാതീതമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം ്അറിയിച്ചു താഴ്ന്ന് പ്രദേശത്ത് ജീവിക്കുന്ന കാൽലക്ഷത്തോളം പേരെപ്പ്ളയ്ം ബാധിച്ചു

നീലയും ചുവപ്പും വെളളയും ഇടക്ലരുന്ന റഷ്യയുടെ ദേശീയ പതാകയ്ക്ക് കീഴിൽ ്ഫുട്ബോൾ വസന്തത്തിന് അരങ്ങുണർന്നു ചരിത്രത്തിൽ ആദ്യമായാണ് റഷ്യ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയ്ക്കാണ് ഉദ്ഘാടന ചടങ്ങ് റഷ്യൻ നഗരങ്ങളും തെരുവുകളും അതിഥികളെ ആവേശ പൂർവ്വം വരവേറ്റു കഴിഞ്ഞു

ഫുട്ബോൾ വസന്തത്തിന്റെ അരങ്ങുണരാൻ ഇനി ഒരു പകലിന്റെ ദൈർഘ്യം മാത്രം

നളിനി എന്ന കപ്പലിലെ ജീവനക്കാരനായ യോഗേഷ് കഞ്ചി സോളങ്കി ആണ് മരണപ്പെട്ടത് നാവിക സേനയുടെ ഹെലികോപ്റ്ററിൽ ഇദ്ദേഹത്തെ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല

ഐപിഎൽ മത്സരത്തിനിടെ കഴുത്തിന് പരിക്കേറ്റ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ അജിങ്ക്യരഹാനെയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക